സംസ്ഥാനത്ത് നാമനിർദ്ദേശൃപ്ത്രികാസമർപ്പണം ആരംഭിച്ചു ആദ്യദിനം സമർപ്പിച്ചത് മൂന്ന് പത്രികകൾ

സി പി ഐഎം ല്യോക്ക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി

കനത്തചൂടിൽ വെന്തുരുകി കേരളം ഇന്ന് സൂര്യാഘാതമേറ്റത് മുപ്പതിലധികം പേർക്ക്

എസ് എസ് എൽ സി പരീക്ഷ അവസാനിച്ചു മൂലൃനിർണയ കൃാമ്പ് അടുത്തമാസം അഞ്ചിന് തുടങ്ങും

ഇതോടൊപ്പം ഡാമൻ ഡ്യൂവിലെയും ദാദ്ര നാഗർ ഹവേലിയിലെയും തിരഞ്ഞെടുപ്പും മൂന്നാംഘട്ടത്തിൽ നടക്കും

ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്ജ് ജില്ലാകളക്ടർക്ക് നാമനിർദ്ദേശ പത്രിക നൽകി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന എസ് യു സി ഐ സ്ഥാനാർത്ഥി എസ് മിനിയാണ് ആദ്യം പത്രിക സമർപ്പിച്ചത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പത്രിക സമർപ്പിച്ചു

സ്ഥാവര ജംഗമവസ്തുക്കൾ അടക്കമുള്ള ് സ്ത്ത് വായ്പാ വിവരങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കുടിശ്ശികയുടെ വിവരങ്ങൾ തുടങ്ങിയവ ഇതിൽ രേഖപ്പെടുത്തണം ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിൽ എഫ് ഐ

ചട്ടലംഘനം തിരഞ്ഞെടുപ്പ് ക മ്മീഷൻ ഗൌരവമായെടുക്കും നാമനിർദേശ പത്രികയോടൊപ്പം ഇത്തവണ സ്ഥാനാർത്ഥിയുടെ സ്റ്റാംപ് സൈസ് ഫോട്ടോ കൂടി സ മർപ്പിക്കണം

ശബരിമലയിൽ ചിത്തിര ആട്ടത്തിരുന്നാൾ ഉത്സവത്തിനിടെയുണ്ടായ സ്ര്ഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി കോഴീക്കോട് ലോക്സഭ മണ്ഡലത്തിലെ ബി ജെ

സ്ഥാനാർത്ഥീയാണ് പ്രകാശ് ബാബു സി

എം

ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ച് കേന്ദ്രത്തിൽ മതേതര ജനാധിപത്യ ഭരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രകടന പത്രിക പുറത്തിറക്കി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു

ടൂറിസം മേഖ്ലയിലെ സഹകരണം ശക്തിപ്പെടുത്തൽ കേരളത്തിൽ പ്പത്രിന്നുള്ള വിദ്യാർത്ഥികളുടെ അമേരിക്കയിലെ ഉന്നതവിദ്യാഭ്യാസ് സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായി

കടുത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകളിലും കുടിവെള്ള ലഭൃത ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നിർദ്ദേശം നൽകി

ഹൈറേഞ്ച് മേഖലയിലും അന്ന്ദിനം ചൂട് വൻതോതിൽ വർദ്ധിച്ച് വരികയാണ്

സൂര്യാഘാതം സൂര്യാഘാത സാധ്യത അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആയൂർവേദത്തിലൂടെ സൂര്യാഘാത സാധ്യത ഫലപ്രദമായി നേരിടുന്നതിന് വേണ്ടി ഭാരതീയ ചികിൽസാ വകുപ്പിന്റെ കേരളത്തിലൂടെ നീളമുള്ള സ്ഥാപനങ്ങൾ വഴി ചികിൽസ ലഭ്യമാക്കിയിരിക്കുകയാണ് ആയൂർവേദത്തിലൂടെ സൂര്യാഘാത പ്രതിരോധത്തെക്കുറിച്ച് ഭാരതീയ ചികിൽസാവകുപ്പ് ഡയറക്ടർ ഇൻ ചാർജ്ജ് ഡോ

പ്രിയ ആകാശവാണിയോട്

ഗവൺമെന്റ് ഇടപാടുകൾ നടക്കുന്ന ബാങ്കുകളുടെ എല്ലാ ശാഖകളും ഞായറാഴ്ച രാവിലെ എട്ടുമുതൽ വൈകിട്ട് ആറുവരെ പ്രവർത്തിക്കണമെന്നാണ് നിർദ്ദേശം

പരീക്ഷാഫലം മെയ് ആദ്യവാരം പ്രസിദ്ധീകരിക്കും

വയനാട് ആനപ്പാറ ടി

സ്വർണ വില കുറഞ്ഞു

സമാപന സമ്മേളനം ഇന്ന് വൈകുന്നേരം ദർബാർ ഹാൾ മൈതാനത്ത് നടക്കും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയാകും